വിജയൻ അറ്റോർണി ജനറലുമായി ചർച്ച നടത്തി

കേന്ദ്രസംഘം വയനാട് തൃശൂർ ജില്ലകൾ സന്ദർശിക്കുന്നു

ഘട്ടത്തിലേക്ക് മുതിർന്ന് നേതാക്കൾ പ്രചാരണത്തിൽ

നെഹ്വാൾ ്ആദ്യ റൌണ്ടിൽ പുറത്തായി

ഫ്ളാറ്റുകൾ പൊളിച്ചുകളയണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ സമയപരിധി കഴിഞ്ഞ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോപിക്കാനാണ് മുഖ്യമന്തി പർപ്പ നടത്തിയത് ഫ്ളാറ്റിലെ താമസക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് അനുകൂല തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൾ വീണ്ടും മരട് നഗരസഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹ സമരം ആരംഭിക്കാനാണ് തീരുമാനം അതേസമയം ഫ്ളാറ്റ് പൊളിക്കുമ്പോഴുള്ള പരിസ്ഥിതി ആഘാതം പഠിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തൽക്കാലം പരിഗണിക്കില്ല

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു വോയിസ്

എല്ലാ മേഖലകളിലും പരിസ്ഥിതി സൌഹൃദമെന്ന പൊതു നിലപാട് ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പൂർത്തിയായ എട്ട് പദ്ധതികളും നിർമ്മാണം ആരംഭിക്കുന്ന നാല് പദ്ധതികളുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

കോഴിക്കോട് കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്നസേവനം മികച്ച രീതിയിലായിരിക്കണമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു

ഏറ്റവും ഒടുവിലാണ് ഫയൽ താൻ കണ്ടത്

ഗവൺമെന്റും ഇ ശ്രീധരനും എടുക്കുന്ന തീരുമാനങ്ങളെ അനുകൂലിക്കുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു

ഞായറാഴ്ച ധരംശാലയിൽ നടക്കേണ്ട ആദ്യ മത്സരം മഴയെത്തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു മഴ്മൂലം ടോസ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു കളി ഉപേക്ഷിച്ചത്

തായ്ലന്റിനോടാണ് സൈനയുടെ തോൽവി

എ

പൊലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ കോടതി ഇടുക്കി കോടതികളുടെ കുറവാണ് രാജ്യത്ത് സുതാര്യമായ നിയമ നടത്തിപ്പിന് തടസ്സമാകുന്നതെന്ന് കേരള് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ഉബൈദ് അടിമാലി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

തിങ്കൾ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവ്വീസെന്ന് കമ്പനി പ്രതിനിധികൾ കൊച്ചിയിൽ അറിയിച്ചു നിലവിൽ മാലിദ്വീപിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാത്രമാണ് സർവ്വീസുള്ളത്

കഴിഞ്ഞ ചെറുവാഹനങ്ങൾക്കായി പാത തുറന്നു കൊടുത്തത്

നാട്ടുകാരും പോലീസും ചേർന്ന് പരിക്കേറ്റവരെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു

ബാണാസുരസാഗർ വയനാട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാണാസുരസാഗർ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഇന്ന് തുറക്കും ഡാമിലേക്ക് നീരൊഴുക്ക് കൂടിയ സാഹചര്യത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ ഷട്ടർ തുറക്കുന്നത് കരമാൻ തോടിന്റെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് ദിശ തെറ്റിയ കപ്പൽ തലശ്ശേരിക്കടുത്ത് ധർമ്മടത്ത് ദിശതെറ്റി എത്തിയ കപ്പൽ നീക്കം ചെയ്യുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കേരള സീമെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അഴീക്കൽ സിൽക്കിൽ പൊളിക്കാനായി മാലദ്വീപിൽ നിന്ന് എത്തിയ ചരക്ക് കപ്പലാണ് ദിശതെറ്റി ധർമ്മടത്ത് എത്തിയത് കേസെടുത്തു മലപ്പുറം മലപ്പുറം കൊണ്ടോട്ടി എട്ടവണ്ണപ്പാറക്കടുത്ത് ഓമാനൂരിൽ ആൾക്കൂട്ട ആക്രമണം നടത്തിയവർക്കിരേ വധശ്രമത്തിന് കേസെടുത്തു

വധശ്രമത്തിന് പുറമേ പൊലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകളും പ്രതികൾക്കെതിരെ ചുമത്തി

സംഗമങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് വൈക്ടിട്ട് മൂന്നിന് തൃപ്രയാർ മഹാത്മ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ എൻ

എസ് കരയോഗം ഹാളിൽ നടക്കും

ഒന്നാം ഘട്ടം ഓൺലൈൻ ചെയ്തു കഴിഞ്ഞവർക്ക് രണ്ടാം ഘട്ടത്തിന് ഒക്ടോബർ മൂന്ന് വരെ അപേക്ഷിക്കാം